മലയാള ദിനാഘോഷ ത്തിനും ഭരണഭാഷാ വാരാചരണത്തിനും ഇന്ന് തുടക്ക മാകും ്റ് സംസ്ഥാനത്ത് പതിനൊന്നാം ശമ്പളക്കമ്മീഷൻ രൂപീക രിച്ചു മഹാ ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് കരുതൽ നടപടികൾ ശക്തം

എം ജി കുസാറ്റ് കണ്ണൂർ സർവകലാശാലകൾ ഇന്നത്തെ പരീക്ഷകൾ മാറ്റി ഫിസാറ്റ് കെ പി എം ജി സെന്റർ ഓഫ് എക്സലൻസ് രാവിലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ഹോർട്ടികോർപ്പിന്റെ പൈനാപ്പിൾ സംഭരണം തിങ്കളാഴ്ച

മലയാള ദിനാ ഘോഷവും ഭരണഭാഷാ വാരാചരണവും ഇന്ന് ആരം ഭിക്കും സംസ്ഥാനതല ചടങ്ങ് ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എഴുത്തുകാരായ യു എ ഖാദർ ഡോ

കേരളപ്പിറവി ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖൃമന്ത്രി പിണറായി വിജയനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു കേരളത്തെ വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ ഉയരങ്ങളിലേയ്ക്ക് നയി ക്കാനും സമൂഹത്തെ സമ്പന്നമാക്കിയ മൈത്രിയും ഒത്തൊരുമയും കാത്തു സൂക്ഷിക്കാൻ കൈകോർക്കാ മെന്നും ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു ജാതി ജീർണ്ണതകൾക്കും അനാചാരങ്ങൾക്കും അന്ധ വിശ്വാസങ്ങൾക്കും ഭേദചിന്തകൾക്കും അതീതമായി മല യാളി മനസ് ഒരുമിക്കാൻ തുടർ മുന്നേറ്റങ്ങൾക്ക് കേരള പ്പിറവി ദിനം പ്രചോദനമാകട്ടെയെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ആശംസാസന്ദേശത്തിൽ പറഞ്ഞു

കെ മോഹൻദാസാണ് കമ്മീഷൻ അധ്യ ക്ഷൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കമ്മീഷൻ രൂപീക രണ തീരുമാനം ആറ് മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി യൂണിയനുകൾ രൂപീകരിക്കാനും അക്കാദ മിക് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പു വരുത്താനും നിയമം നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു

തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയോജക മണ്ഡല അതിർത്തി പുനർ നിർണ്ണയിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീ ഷണർ വി ഭാസ്ക്കരൻ ചെയർമാനായി ഡി ലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരു മാനിച്ചു

നാളെ വരെ കടലിൽ പോക രുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മത്സ്യത്തൊഴിലാളി കൾക്ക് കർശന നിർദ്ദേശം നല്കി

ഇതോടൊപ്പം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

തലശ്ശേരിയിൽ നിന്ന് പോയ അഞ്ച് വള്ളങ്ങളും മാപ്പിള ബേയിൽ നിന്ന് പോയ രണ്ട് തോണികളും ഇനിയും തിരി ച്ചെത്തിയിട്ടില്ല കോസ്റ്റ് ഗാർഡും നാവികസേനയും ഇവർക്കായി തിരച്ചിൽ തുടങ്ങി മഴ ശക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകി സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ അംഗൻവാടി മദ്രസ്സ എന്നിവയ്ക്കും അവധി ബാധകമാണ്

കടലാ ക്രമണ ഭീഷണി നേരിടുന്നവർ ക്യാമ്പുകളിലേയ്ക്ക് മാറ ണമെന്ന് ജില്ലാകലക്ടർ ആവശ്യപ്പെട്ടു

പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൊച്ചി കണ യന്നൂർ താലൂക്കിലെ പ്രൊഫണഷൽ കോളജുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി യായിരിക്കും

ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്ധീപിലേക്ക് പോകേ ണ്ടിയിരുന്ന രണ്ട് ചരക്കു കപ്പലുകളും ഒരു യാത്രാക്ക പ്പലും യാത്ര നിർത്തി വെച്ചു ഇവ തിങ്കളാഴ്ചയേ പുറ പ്പെടൂ തീരമേഖലയിൽ പൊതുവെ കടൽ പ്രക്ഷുബ്ധ മാണ് കൊയിലാണ്ടി പാറപ്പള്ളി ബീച്ചിൽ കടൽ കയ റിയതിനെ തുടർന്ന് ഏഴ് കുടുംബങ്ങളെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേയ്ക്ക് മാറ്റിപ്പാർപ്പിച്ചു മീൻപിടുത്തക്കാർ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ജില്ലാകലക്ടർ കർശന നിർദ്ദേശം നല്കി

നിരവധി വീടുകളിൽ വെള്ളം കയറി പൊന്നാനി തീരദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പി ക്കാൻ എം ഐ ബോയ്സ് ഹൈസ്കൂളിൽ ദുരിതാ ശ്വാസ ക്യാമ്പു തുറന്നു മലപ്പുറം ജില്ലയിലെ തീരദേശ താലൂക്കുകളായ പൊന്നാനി തിരൂർ തിരൂരങ്ങാടി എന്നിവിടങ്ങളിൽ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല

തീരവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കണക്കിന് വീടുകളിൽ വെള്ളം കയറി കടൽഭിത്തിയില്ലാത്ത ഭാഗങ്ങളിലാണ് കട ലാക്രമണം രൂക്ഷമായത് എറിയാട് പഞ്ചായത്തിൽ രണ്ട് ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നു ചാവക്കാട് ഭാഗത്തും കടലാക്രമണം മൂലം ഒട്ടേറെ വീടു കളിൽ വെള്ളം കയറി പലയിടത്തും ഗതാഗതം തടസ്സപ്പെ ട്ടു

ഇവരെ കണ്ടെത്താൻ നാവികസേനയും തീരസേ നയും ശ്രമം തുടരുകയാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് അണക്കെട്ടിന്റെ സ്ലൂയിസ് ഗേറ്റ് രാവിലെ തുറക്കും ചാലക്കുടി പുഴയുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നല്കി തൃശൂർ ജില്ലയിലെ ചാവക്കാട് കൊടുങ്ങല്ലൂർ താലൂക്കു കളിലെ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാകലക്ടർ അവധി പ്രഖ്യാ പിച്ചു

വനഭൂ മിയിൽ നിന്ന് ആൽമരം വീടിന്റെ മുകളിലേയ്ക്ക് വീഴു കയായിരുന്നു ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ രാവിലെ ഒരടി ഉയർത്തും മുതിരപ്പുഴയാർ പെരിയാർ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമു ണ്ട് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തുട

വട ക്കുംതറയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ന് നടത്താനി രുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു പുതിയ തിയ്യതി പിന്നീട് അറിയിക്കും കുസാറ്റ് കണ്ണൂർ സർവകലാശാ ലകളും ഇന്നത്തെ പരീക്ഷ മാറ്റി പുതുതലമുറയ്ക്ക് ലോകോത്തര വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് കൊച്ചി മൂക്ക ന്നൂർ ഫിസാറ്റിൽ ആരംഭിക്കുന്ന ഫിസാറ്റ് കെ പി എം ജി സെന്റർ ഓഫ് എക്സലൻസ് രാവിലെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ഫിസാറ്റിൽ ആരംഭിക്കുന്ന മേക്കർ ഫെയർ കേരളയ്ക്കും അദ്ദേഹം തുടക്കം കുറിയ്ക്കും

ഇന്ന് കൊച്ചിയിൽ നിന്ന് രാത്രി ഡൽഹിയിലേക്ക് പോകുന്ന ശ്രീധരൻപിള്ള രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരെ സന്ദർശിക്കും തിങ്കളാഴ്ച അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മിസോറാമിലേയ്ക്ക് പുറ പ്പെടും

മഴ ആരംഭിച്ചതോടെ പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് സംഭര ണം

സംസ്ഥാന ദേശീയതല ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തവർക്ക് ട്രയൽസിനെത്താം

വാളയാർ കേസിൽ പുനരനേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി പാലക്കാട് കമ്മറ്റി ഈ മാസം ആറ് ഏഴ് തിയ്യതികളിൽ നീതിരക്ഷാമാർച്ച് നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ നയിക്കുന്ന മാർച്ച് അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിച്ച് കലക്ട്രേറ്റിന് മുന്നിൽ സമാപിക്കും ഇന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധവരയും ദീപം തെളിയിക്കലും നടത്തുമെന്നും ജില്ലാകമ്മറ്റി അറിയിച്ചു

താനൂർ അഞ്ചുടിയിൽ മുസ്ലീംലീഗ് പ്രവർത്തകൻ ഇസഹാക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ നാല് പേർ അറ സ്റ്റി ലാ യി കഴിഞ്ഞ മാർച്ചിലുണ്ടായ ആക്രമണത്തിന് സംഘം പകരം വീട്ടുകയായിരുന്നു വെന്നാണ് നിഗമനം